ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രതിരോധ മേഖ്ല്യിലെ പടക്കപ്പലുകൾ വിമാനങ്ങൾ ന് എന്നിവയുടെ നിർമ്മാണങ്ങൾ ഇനി വൃവസായ വികസന നിയന്ത്രണ നിയമത്തിന്റെ പരിധിയിലെന്ന് ഗവൺമെന്റ്

ആശ്വാസമായി തിരിച്ചടവിൽ വീഴ്ച വരുത്തിയ വായ്പകൾ ഒറ്റത്തവണ പുനഃക്രമീകരിക്കാൻ ആർ

വനിതകളുടെ ദേശീയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചണ്ഡിഗഡ് ഡൽഹി പഞ്ചാബ് മുന്നിട്ട് നിൽക്കുന്നു

അയോദ്ധ്യ കേസിലെ വിധി കോൺഗ്രസ് വൈകിപ്പിക്കുകയാണെന്ന് വാർത്താ ഏജൻസിക്കു നല്കിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി സുരേഷ്

കടക്കെണി മൂലം ആത്മഹൃത്യ ്ചെയ്ത ഭൂരിഭാഗം കർഷകരും സ്ഥകാര്യ പണമിടപാട്ടുകാരിൽ നിന്ന് കടമെടുത്തവരാണ്

രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ ഗവണ്മെന്റ് നിരന്തരം ശ്രമിച്ചു വരികയാണ് നാണയപ്പെരുപ്പം രണ്ടു ശതമാനം കുറയ്ക്കാൻ സാധിച്ചു ആയുഷ്മാൻ ഭാരത് മുദ്ര യോജന ഉഡാൻ സ്റ്റാർട്ട്അപ് പദ്ധതികൾ തുടങ്ങിയവ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് മധ്യവർഗ്ഗ ജനതയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു റഫാൽ വിഷയത്തിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയതാണെന്നും സുപ്രീംകോടതി അതിൽ വിധി പുറപ്പെടുവിച്ചതായും അദ്ദേഹം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന ക്ഷേത്രനിർമ്മാണ വിഷയത്തിൽ ഗുണകരമായ ചുവടുവയ്പ്പാണെന്ന് ആർ

ഇരുമതവിഭാഗങ്ങളും തമ്മിൽ രമ്യമായ ചർച്ചയ്ക്കു ശേഷമോ അതല്ലെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിലൂടെയോ മാത്രമേ അയോദ്ധ്യയിലെ രാമജൻമഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ ശ്രമിക്കൂ എന്ന ആശയമായിരുന്നു അന്നത്തെ പ്രമേയം മുന്നോട്ട് വച്ചത്

പ്രതിപക്ഷം സഭ ബഹിഷ്ക്കരിച്ചെങ്കിലും ്ര ലോക്സഭ ബിൽ കഴിഞ്ഞയാഴ്ച പാസ്സാക്കിയിരുന്നു

ബിൽ പരിശോധനയ്ക്കായി സ്ലക്ട് കമ്മിറ്റിയുടെ പരിധിയിൽ വിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്സ് നയിക്കുന്ന പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധിച്ചിരുന്നു ബില്ലിന്മേൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്നും ബിൽ പാസ്സാക്കണമെന്നും പാർലമെന്ററി കാര്യ സഹമന്ത്രി വിജയ് ഗോയൽ ആവശ്യപ്പെട്ടു

വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ ലൈസൻസുകൾ ഇത്തരം നിർമാണങ്ങൾക്ക് ഇനി മുതൽ ആവശ്യമില്ല ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കി ലൈസൻസ് നിർബന്ധമായും നേടിയിരിക്കേണ്ട പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്

ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ജി എസ് ടി വഴിയുള്ള സമാഹരണം ഒരു ലക്ഷം കോടി രൂപ കഴിഞ്ഞതായും ധനമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ഡി ദേവഗൌഡ പ്രധാനമന്ത്രിയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ബിജെപി കർണ്ണാടക അദ്ധ്യക്ഷൻ ബി

ഇന്നലെയാണ് അദ്ദേഹം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കാശ്മീരിലെത്തിയത്

നോർത്തേൺ ആർമി കമാൻഡർ ലെഫ്റ്റനന്റ് ജനറൽ രൺബീർ സിങ്ങ് പിനാർ കോർപ്സ് കമാൻഡർ ലെഫ്റ്റനന്റ് ജനറൽ എ

കഴിഞ്ഞു ദിവസം നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായ കുപ്പാര സന്ദർശിച്ച കരസ്സേന്റ് മേധാവി സ്ഥിതിഗതികൾ വിലയിരുത്തി

ഏതു സാഹചര്യത്തെയും നേരിടാൻ കൃത്രുതലോടയിരിക്കണമെന്നും നിർദ്ദേശിച്ചു

ജി എം

ജമ്മു മേഖലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തശേഷം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായി പോലീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് വാഹനങ്ങൾ പരിശോധിക്കാൻ പ്രത്യേകിച്ചും അതിർത്തിമേഖലയിൽ പ്രത്യേക ബാരിക്കേഡുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ നവോത്ഥാന പ്രതിജ്ഞയോടെയാണ് വനിതാ മതിലിന് തുടക്കമായത്

എം നേതാവും മുൻ എം

യുമായ സൈമൺ ബ്രിട്ടോയുടെ ഭൌതിക ശരീരം ഇന്ന് കൊച്ചിയിൽ പൊതുദർശനത്തിനുവെയ്ക്കും

തുടർന്ന് സൈമൺ ബ്രിട്ടോയുടെ ആഗ്രഹ പ്രകാരം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും

ടി നടപ്പിലാക്കൽ നോട്ട് നിരോധനം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് തീരുമാനം പ്രയോജനപ്പെടും

എസ് ആർ ഒ

ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് രാജ്യത്തെ യുവാക്കളിൽ അവബോധ മുണ്ടാക്കുകയാണ് ലക്ഷ്യം

തമിഴ്നാട്ടിൽ നിന്നുള്ള വി വിനോദിനിയെയാണ് റിയ പരാജയപ്പെടുത്തിയത്